അവസരങ്ങളും ലഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമത്തെ കുറിച്ചുള്ള ശരിയായ അറിവ് കരുത്താകുമെന്നും മൻ കി ബാതിൽ പ്രധാനമന്ത്രി

തയ്യാറാണെന്ന് കേന്ദ്ര ആഭൃന്തർമ്പ്രി അമിത്ഷാ

എസ്

ഇയ്ക്കെതിരായ ആരോപണം ന് അന്വേഷണത്തിന് എത്തിരല്ലെന്ന് മന്ത്രി ടി

ബുധനാഴ്ച മുതൽ സ്ഥാപിച്ചു തുടങ്ങും

തുടരുന്നു ഐഎസ്എല്ലിൽ മൂന്നാം മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും

ഈ കാർഷിക നിയമത്തിലൂടെ വിളവാങ്ങി മൂന്നു ദ്ദി്പസത്തിനകം കർഷകന് മുഴുവൻ പണം നല്കണമെന്നു വ്യവസ്ഥയുണ്ട്

എല്ലാതരം ആശയകുഴപ്പങ്ങളിൽ നിന്നും ശരിയായ വിവരങ്ങൾ മനസ്സിലാക്കുക എന്നത് വലിയ കാര്യമാണ്

വാക്സിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ മാരകമായിരിക്കും കൊറോണയ്ക്കെതിരായ പോരാട്ടം ശക്തമായി തുടരണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

അരബിന്ദോ ഡോ

ന്യൂസിലന്റ് പാർലമെന്റില്ലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഗൌരവ് ശർമ്മയെകുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു

ചർച്ചയ്ക്കായി ഡിസംബർ മൂന്നിന് കേന്ദ്ര കൃഷിമന്ത്രി കർഷരെ ക്ഷണിച്ചിട്ടുണ്ട് കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും ആവശൃങ്ങളും സസൂക്ഷ്മം പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ അമിത്ഷാ അറിയിച്ചു

എന്നാൽ വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ എതിരാളികൾക്കുക സ്ഥാപനത്തിന്റെ എതിരാളികൾക്കും ആയുധം നല്കുന്നത്ർത്ത്ലാകരുതെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണത്തിൽ ഔചിത്യം പാലിക്കണമെന്നും ശ്രീ തോമസ് ഐസക് മാധ്യമങ്ങളോട് സംസാരിക്കവെ വ്യക്തമാക്കി

തന്റെ വകുപ്പുമായിബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അന്വേഷണം നടത്തേണ്ട എന്നാണ് നിലപാടാണ് ധനകാര്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു

ഇ ചിട്ടി തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സർക്കാർ പുറത്തു വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

മറ്റ് ജില്ലകളിൽ കഴിയുന്ന കോവിഡ് ബാധിതർക്കും കാറൻറൈനിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കും

് ചീഫ് സെക്രട്ടറിതല യോഗത്തിൻറെ തീരുമാനം അംഗീകരിച്ച് ഉത്തരവ് ഇറങ്ങിയാൽ ഓരോ ദിവസവും രണ്ടായിരം പേർക്ക് ദർശനത്തിന് എത്താൻ കഴിയും നിലവിൽ ഇത് ആയിരമാണ്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

മുഹമ്മദ് ഷമി നേടിയ വിക്കറ്റിലൂടെയാണ് കൂട്ടുകെട്ട് തക്ടർത്തത്

ഡിസംബറിൽ ആലപ്പുഴയിൽ തുടങ്ങുന്ന ടൂർണ്ണമെന്റിൽ കാണികൾക്ക് പ്രവേശനമുണ്ടാകില്ല

ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുകയും രണ്ടാം മത്സരത്തിൽ സമനില വഴങ്ങുകയും ചെയ്ത ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടുന്നില്ല് ് ഇന്ന് വൈകിട്ട് അഞ്ചിന് നട്ടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ഒഡീഷയെ നേരിടും

കൃകൃകൃകൃകൃകൃ കാലാവസ്ഥ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെത്തുടർന്ന് കേരളത്തിൽ അടുത്തയാഴ്ച അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ബുധനാഴ്ച തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും ചിലയിടങ്ങളിൽ അതിശക്ത മഴയ്ക്ക് സാധൃതയുണ്ട്